വിമാനച്ചിറകിലേറി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം രാഷ്ട്രത്തിന് സമർപ്പിച്ചു

കൊടിയിറങ്ങും

പഞ്ചായത്ത് തെരെത്തെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു

വിജയലക്ഷ്യം

പുരൂഷ ഹോക്കി ലോകകപ്പിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ

വിമാനത്താവളം വേഗത്തിലും മാതൃകാപരമായും പൂർത്തിയാക്കിയ സംസ്ഥാന ഗവൺമെന്റിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനേയും കേന്ദ്ര മന്ത്രി സുരേഷ് പ്രഭു അഭിനന്ദിച്ചു കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്തുദ്പള്ളത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനുമാ്യി ചേർന്ന് നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ വിമാനത്താവളം സ്മയ്ബന്ധിതമായി പൂർത്തീകരിക്കാൻ ഗവൺമെന്റ് വഹിച്ച പങ്കും അടിസ്ഥാന സൌകര്യ വികസനത്തിന് മുഖ്യമന്ത്രി നൽകുന്ന് നേതൃത്വവും മാതൃകാപരമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു കണ്ണൂർ വിമാനത്താവളത്തിലൂടെ കേരളം മറ്റൊരു ചരിത്രം കുറിച്ചതായും കയറ്റുമതി ടൂറിസം മേഖലകൾക്ക് വൻ കുതിച്ചു ചാട്ടത്തിന് ഇത് വഴിവെക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അബുദാബിയിലേക്കാണ് കണ്ണൂരിൽ നിന്നുള്ള ആദ്യ സർവ്വീസ് ആരംഭിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ആകാശവാണി പ്രതിനിധി കെ

ശശിധരൻ

വിധികർത്താവിനെ ചൊല്ലി മത്സരാർത്ഥികൾ പ്രതിഷേധിച്ചതിനെതുടർന്ന് മാറ്റി വച്ച കൂടിയാട്ട മത്സരവും ഇന്ന് നടക്കും

മേഖലയുടെ ആകെ ശക്തിവർദ്ധിപ്പിക്കാൻ മൂന്ന് ദശാബ്ദംകൊണ്ട് സാർക്ക് കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു

എന്നാൽ ആക്രമണത്തിൽ തങ്ങൾക്കുള്ള പങ്ക് പാക്കിസ്ഥാൻ സമ്മതി ക്കുന്നത് സന്തുഷ്ടി പകരുന്ന കാര്യമാണെന്നും അദ്ദേഹം അഭി പ്രായപ്പെട്ടു

നിയമസഭ വോട്ടെടുപ്പ് പൂർത്തിയായ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണലാണ് ചൊവ്വാഴ്ച നൂട്ട്ക്കുക്

വെള്ളിയാഴ്ച നടന്ന വോട്ടെടുപ്പിനെ സംബന്ധിച്ച് വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണിത്

ഇവരിൽ രണ്ട് പേർ വിദേശികളാണ് മ്ഖ്ലയിൽ തീവ്രവാദികളുടെ സാന്നിധ്യം ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് സേന നടത്തിയ തെരച്ചിലിനിടെയാണ് വെടിവയ്പ് ഉണ്ടായത്

ജമ്മുകാശ്മീരിൽ നിന്നാണ് ഇയാളെ അറസ്റ്റു ചെയ്തത് ഗോഹത്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായ അക്രമ സംഭവത്തിൽ പൊലീസ് ഇൻസ്പെക്ടർ സുബോധ് കുമാർ സിംഗും ഒരു ഗ്രാമീണനും കൊല്ലപ്പെട്ടിരുന്നു

യിലെ ഫെഡറൽ നാഷണൽ കൌൺസിലിൽ ഉള്ള എമിറേറ്റി വനിതാ പ്രതിനിധ്യം വരുന്ന പാർലമെന്ററി കാലയളവു മുതൽ ഇരട്ടിയാക്കി

എ ഇ

പാർലമെന്റിലെ വനിതാ പ്രാതിനിധ്യത്തിൽ യു എ

ലോകത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാന മെന്ന് എമിറേറ്റി വാർത്താ ഏജൻസി അറിയിച്ചു വർഷങ്ങളായി ആഗോളതലത്തിൽ പുരുഷ പ്രതിനിധികളുണ്ടാക്കിയ നേട്ടം റെക്കോർഡ് സമയം കൊണ്ട് നേടുവാൻ യ എ

ഇന്ത്യയ്ക്കായി മുഹമ്മദ് ഷമി ആർ